സർദാർ വല്ലഭ്ഭൂർയി പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ നാളെ ദേശീയ ഏകതാ ദിനമായി ആചരിക്കും

ജമ്മുകാശ്മീർ ലഡാക്ക് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും

എൽ

എൽ

കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പാർടി വൈസ് പ്രസിഡന്റ് അവിനാശ് റായ് ഖന്ന എന്നിവർ കേന്ദ്ര നിരീക്ഷകരായി പങ്കെടുത്തു മറ്റൊരുപേരും യോഗത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി നരേന്ദ്രസിംഗ്തോമർ പറഞ്ഞു നിയമസഭാ കക്ഷി നേതാവായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ദേവേന്ദ്രഫട്നാവിസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷായ്ക്കും എം

സംസ്ഥാനത്തെ കർഷകരുടെ നില കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രാമുഖ്യാ നൽകുകയെന്നും ശ്രീ

ന്യൂസ്ഡസ്ക് ആകാശവാണി

ഖട്ടാറും ഹരിയാന ഉപ്പമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാലയും സംസ്ഥാന മന്ത്രിസഭ സ്ട്ബെന്ധിച്ച് ഇന്നലെ ന്യൂഡൽഹിയിലെ ഹരിയാന ഭവനിൽ പ്പാചർച്ച നടത്തിയിരുന്നു സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നവംബർ നാലിന് നടന്നേക്കും

ഒരുക്കങ്ങൾ പൂർത്തിയായി രാജ്യത്തെമ്പാടുമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ ലക്ഷങ്ങൾ പങ്കെടുക്കും ഗുജറാത്തിലെ കെവാഡിയയിൽ നിലകൊള്ളുന്ന സർദാർ വല്ലഭ്ഭായി പട്ടേലിന്റെ പ്രതിമയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ശ്രദ്ധാഞ്ജലി അർപ്പിക്കും തുടർന്ന് അദ്ദേഹം ഏകതാ ദിവസ് പരേഡിലും പങ്കെടുക്കും

പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയായ മൻ കി ബാതിൽ ഏകതാ ദിവസ് മാരത്തണിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ആഹാനം ചെയ്തിരുന്നു

കേന്ദ്ര ഗവൺമെന്റാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് രാജ്യത്തിന്റെ ഐക്യവും അ അണ്ഡതയും സംരക്ഷിക്കുന്നതിനും ശക്തവും സുദൃഢവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനും സംഭാവന നൽകുന്നവർക്കായിരിക്കും പുരസ്കാരം സർദാർ പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ നാളെ പുരസ്കാരം പ്രഖ്യാപിക്കും

വിശദാംശങ്ങളുമായി വിനോദ്

മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു് അവർ താഴ്വരയിൽ ഭീകരവാദം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കുമെന്നും താഴ്വരയിലെ ജനങ്ങൾക്ക് തൊഴിൽ സാധ്യതകൾ ഗവണ്മെന്റ് ഉറപ്പുവരുത്തണമെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ഇന്നലെ ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളെ കൊലപ്പെടുത്തിയ ഭീകരവാദികളുടെ നടപടിയെ യൂറോപ്യൻ യൂണിയൻ എം

പിമാരാണ് ജമ്മുകശ്മീരിലെത്തിയത് ന്യൂസ്ഡസ്ക് ആകാശവാണി

ഇന്ന് വൈകിട്ട് മൂന്നേകാലോടെ യാതൊരു പ്രകോപനവും കൂടാതെ സുന്ദർബനി പ്രവിശ്യയിലെ നിയന്ത്രണ രേഖയ്ക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പ്രതിരോധവക്താവ് അറിയിച്ചു ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല

ഇന്ന് രാവിലെ കുപ്പ്വാര ജില്ലയിലുണ്ടായ വെടിവെയ്ക്പ്ീൽ ഒരു പ്രദേശവാസി കൊല്ലപ്പെടുകയും അഞ്ച് പ്പേർക്ക് പരിക്കേല്ക്കുകയും ചെയ്തിരുന്നു പരിക്കേറ്റവരെ ആശുപ്പത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്

അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്

റോഡ് നിർമ്മാണം പരിസ്ഥിതി സൌഹാർദപരമായിരിക്കണമെന്നും ശ്രീ

സിംഗ് ആവശ്യപ്പെട്ടു

പ്രതിപക്ഷം കൊണ്ടു വന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം വിശദാംശങ്ങളുമായി വിനോദ്

ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം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

അതേസമയം സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു

വിശദമായ അന്വേഷണം നടത്തി ഡി ജി

ന്യൂസ്ഡസ്ക് ആകാശവാണി

ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി രാധാകൃഷ്ണ മാതൂർ ചുമതലയേൽക്കും

സുഗമമായ പരീക്ഷാ നടത്തിപ്പിന് എല്ലാ ക്രമീകരണങ്ങളുംഏർപ്പെടുത്തിയിട്ടുണ്ട്

ചോദ്യം ചെയ്യുന്നതിനായി ഒരു പ്രദീവ്സത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയ്റ്റ്ക്ടറേറ്റ് നൽകിയ ഹർജി കോടതി തള്ളി

പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇതിനായുള്ള അനുവാദം നൽകിയത്

ടോകിയോയിൽ നടന്ന മത്സരത്തിൽ താപ്പ ജപ്പാൻ താരത്തെ തോല്പിച്ചാണ് ഒളിംപിക് യോഗ്യത നേടിയത് പൂജാറാണി ബ്രസീൽ താരത്തെയും പരാജയപ്പെടുത്തി

രാജ്യത്തിന്റെ വികസനത്തിനായി തന്റെ ഗവണ്മെന്റ് അതിശക്തമായ നടപടികളാണ് കൈക്കൊണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു